ഇടതു മുന്നണി വീണ്ടും അധികാരത്തിലേക്ക്

ഡി എഫ് യു

തമിഴ്നാട്ടിൽ ഡി

മുന്നണിക്ക് വൻ വിജയം

നിലനിർത്തും മുഖ്യമന്ത്രി മമതാ ബാനർജി നന്ദിഗ്രാമിൽ പരാജയപ്പെട്ടു

ജെ

അസ്സമിലും പുതുച്ചേരിയിലും ബി ജെ

ഡി എ

പുരോഗതിയും പ്രധാനമന്ത്രി വിലയിരുത്തി

പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഇടതു മുന്നണി സർക്കാരിന് തുടർഭരണം

നിലവിലെ സഭയിൽ ഒരംഗമുണ്ടായിരുന്ന ബി ജെ

ക്ക് ഇത്തവണ ആ സീറ്റും ഉറപ്പിക്കാനായില്ല വോട്ടെണ്ണലിന്റെ ആദ്യ മണിക്കൂറിലുണ്ടാ യിരുന്ന ഇടതു മുന്നേറ്റം ഒടുക്കം വരെ മികച്ച രീതിയിൽ തുടരുകയായിരുന്നു

ഡി എഫ്

എറണാകുളം മലപ്പുറം വയനാട് ജില്ലകളില്ലാണ്ട് യു ഡി

ജെ

ശക്തമായ മൃത്സ്രമാണ് ഇത്തവണ കാഴ്ച വച്ചതെങ്കിലും ഒരു സീറ്റിലും ജയിക്കാനാവില്ല പാലക്കാട് ഇ

ശ്രീധരനും കുമ്മനം രാജശേഖരനും ജയിക്കുമെന്ന പ്രതീക്ഷയാണ് ഏറെക്കുറെ സൃഷ്ടിച്ചത്

ജെ

യുടെ ഒ രാജഗോപാൽ ജയിച്ച മണ്ഡലമാണ് തിരുവനന്തപുരത്തെ നേമം

ശിവൻകുട്ടിയോടാണ് കുമ്മനം രാജശേഖരൻ പരാജയപ്പെട്ടത്

സംസ്ഥാനത്ത് നടന്നത് വലിയ രാഷ്ട്രീയ പോരാട്ടമാണെന്നും ജയം ജനങ്ങളുടേതാണെന്നും അദ്ദേഹം കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു

അപ്രതീക്ഷിതമായ തോൽവിയാണ് യു ഡി എഫിന് ഉണ്ടായതെന്നും എവിടെയാണ് പാളിച്ച ഉണ്ടായതെന്ന് യോഗം ചേർന്ന് വിലയൂരുത്തുമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു

ജെ

സംസ്ഥാന അധ്യക്ഷൻ കെ

ജെ

ക്ക് വിജയസാധൃത ഉണ്ടായിരുന്ന പല മണ്ഡലങ്ങളിലും വലിയ തോതിൽ ധ്രുവീകരണത്തിനുള്ള നീക്കം നടന്നുവെന്നാണ് പ്രാഥമിക നിഗമനം എന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചു

സി സി അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ പരാജയത്തെ പരാജയമായി വിലയിരുത്തുന്നുവെന്നും അദ്ദേഹം മാധൃമങ്ങളോട് പറഞ്ഞു

വിശദാംശങ്ങളുമായി കൃഷ്ണ വോയ്സ് പാലക്കാട്ടെ വാശിയേറിയ പോരാട്ടത്തിൽ അവസാന നിമിഷം മെട്രോമാൻ ഇ

വോട്ടെണ്ണലിന്റെ തുടക്ക വേളയിൽ ലീഡ് ചെയ്ത സുരേഷ് ഗോപി കുമ്മനം രാജശേഖരൻ എന്നിവരും പരാജയപ്പെട്ടു ഏറെ വിജയ പ്രതീക്ഷ പുലർത്തിയിരുന്ന ബി ജെ

സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ മത്സരിച്ച രണ്ടു മണ്ഡ്രലങ്ങളായ മഞ്ചേശ്വരം കോന്നി എന്നിവിടങ്ങളിൽ പരാജയുട്ടപ്പെട്ടു പൂഞ്ഞാറിൽ വിജയ പ്രതീക്ഷ നിലനിർത്തിയിരുന്ന പി

മന്ത്രിമാരിൽ ജെ

ഡി എഫിന്റെ പി

കേരള കോൺഗ്രസ് എ ് ല്ലെ ജോസ് കെ

ഡി എഫിന്റെ മാണി സി

ജെ

വിജയ പ്രതീക്ഷ വെച്ച കഴക്കൂട്ടത്ത് പാർട്ടി സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ മൂന്നാം സ്ഥാനത്തായി

ന്യൂസ് ഡെസ്ക് ആകാശവാണി

ഡി

വോട്ടെണ്ണിലിന്റെ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ആകാശവാണി കോട്ടയം പ്രതിനിധി ടോം മാത്യൂ ചേരുന്നു

എം

നേതാവും ബി ജെ

സ്ഥാനാർത്ഥിയുമായി ്ട്സുവേന്ദു അധികാരിയോടാണ് മുഖ്യമന്ത്രി പരാജയപ്പെട്ടിര്ട് ബി ജെ

നേതൃത്വത്തിലുള്ള എൻ ഡി എ യുമായി ശ്രീക്ത്മായ പോരാട്ടം നടത്തിയ ടി എം സി

ജെ

കോൺഗ്രസ് ഇടതു സഖ്യത്തിന് തെരഞ്ഞെടുപ്പിൽ കാര്യമായ നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞില്ല

എം

കോൺഗ്രസ് സിപി ഐഎം സി

ഡി എ എന്നീ കക്ഷികളുമായി സഖ്യമുണ്ടാക്കി യാണ് ഡി

പാർട്ടി അധ്യക്ഷൻ എം

സ്റ്റാലിനാണ് ഡി

മുന്നിലാണ്

കെ മൂന്നിടത്താണ് മുന്നിൽ വോട്ടെണ്ണൽ തുടരുന്നു

ജെ പി നേതൃത്വം നൽകുന്ന എൻ ഡി എ യ്ക്ക് തുടർഭരണം

ഭരണ നേട്ടങ്ങളാണ് ജനങ്ങൾ ബി ജെ പിയെ വീണ്ടും അധികാരത്തിൽ എത്തിച്ചതെന്ന് മുതിർന്ന പാർട്ടി നേതാവും കേന്ദ്രമന്ത്രിയുമായ ജിതേന്ദർ സിങ് പറഞ്ഞു ന്യൂനപക്ഷം പൂർണ്ണമായി ബി ജെ പിയോടൊപ്പം നിന്നു

മെഡിക്കൽ ഓക്സിജന്റെയും കോവിഡ് ചികിത്സക്കുള്ള ഔഷധങ്ങളുടെയും ലഭ്യത ഉന്നത ആരോഗ്യ വകുപ്പ് ഉദ്യോഗസ്ഥരുമായി പ്രധാനമന്ത്രി ചർച്ച ചെയ്തു

പ്രപ്പധാനമന്ത്രിയുടെ പ്രിൻസിപ്പൾ സെക്രട്ടറി ക്യാബിനറ്റ് സ്പെക്രട്ടറി ആഭ്യന്തര സെക്രട്ടറി എന്നിവർ യോഗത്തിൽ സംബന്ധിച്ചുക്ക്കോവിഡ് വ്യാപനത്തിന്റെ രണ്ടാം വരവ് ശക്തമായതിക്കുശേഷം പ്രധാനമന്ത്രി ദിവസവും സ്ഥിതിവിലയിരുത്തി വർക്കയാണ്

എല്ലാ സംസ്ഥാനങ്ങളിലും മെഡിക്കൽ ഓക്സിജൻ എത്തിക്കാ നുള്ള ശ്രമങ്ങളുമായാണ് റയിൽവേ മുന്നോട്ടുപോകുന്നത്

തമിഴ്നാട്ടിൽ അധികാരം തിരിച്ചുപിടിച്ച ഡി

നേതാവ് എം

സ്റ്റാലിനെയും ശ്രീ

അസ്സമിൽ സർബാനന്ദ സോനോവോളിന്റെ വിജയം ജനക്ഷേമ പരിപാടികൾക്കുള്ള അംഗീകാരമെന്ന് ശ്രീ രാജ്നാഥ് സിംഗ് പറഞ്ഞു

ജെ

യുടെ വിജയത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും രാജ്നാഥ് സിംഗ് അഭിനന്ദിച്ചു